സംസ്ഥാനത്ത് മഴയുടെ ശക്തികുറയുന്നു മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട മഴ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം രാജ്യത്തിനു മാതൃകയാണെന്നും ന്യു ജനറേഷൻ ബാങ്കുകൾ ജനങ്ങളെ കൊള്ളയടിക്കുന്നുവെന്നും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ കേരള കോൺഗ്രസിൽ സ്ഥാനാർഥി തർക്കം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയം തെരഞ്ഞെടുപ്പ് കോറം തികയാത്തിനാൽ മാറ്റി

ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുക എന്ന അജണ്ടയുടെ ഭാഗമായാ ണ് പിഎസ്സിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളെ കാണേണ്ടതെന്നും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എന്നാൽ വിമർശനങ്ങൾ തുറന്ന മനസോടെ സ്വീകരിക്കാൻ തയ്യാറാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു

മരത്രര പ്രതിപക്ഷ നേതാവ് സിപിഐ എംഎൽഎയെ പൊലീസ് മർദ്ദിച്ചതിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രതികരിക്കാത്തത് അപഹാസ്യമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ സമരം ചെയ്യുന്നവരെ തല്ലിച്ചതയ്ക്കുന്ന രീതിയിലേക്ക് പൊലീസിനെ മുഖ്യമന്ത്രി മാറ്റിയെടുത്തെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു

സിപിഐയുടെ തിരുത്തൽ നടപടികൾ ശക്തമായിത്തന്നെ മുന്നോട്ടു കൊണ്ടുപോകുമെന്ന് എൽദോസ് എബ്രഹാം എംഎൽഎ പൊലീസിന്റെ സംവിധാനം നല്ല രീതിയിലല്ല മുന്നോട്ടു പോകുന്നതെന്നും എംഎൽഎ ആരോപിച്ചു ഇന്നലെ നടന്ന സിപിഐ മാർച്ചിൽ എംഎൽഎ ഉൾപ്പെടെയുള്ള സിപിഐ നേതാക്കൾക്ക് പൊലീസ് മർദ്ദനം ഏറ്റിരുന്നു അതേസമയം സിപിഐ നേതാക്കൾക്ക് മർദ്ദനമേറ്റത് ദൌർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി അപലപിച്ചു

ഐ കെ

ഡ്രാണ്ടു സമർപ്പിച്ച ജാമ്യാപേക്ഷ തൊടുപുഴ ജില്ലാ സെക്ഷൻസ് കോടിയി ഇ്ന്നു പരിഗണിക്കും

ജില്ലകളിലെ അലർട്ടുകൾ പിൻവലിച്ചു കണ്ണൂർ ജില്ലയിൽ ഇന്നലെ മുതൽ മഴയ്ക്ക് ശമനം

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ

ഇതിനിടെ കൊച്ചി ധനുഷ്ക്കോടി ദേശിയപാതയിലെ നേര്യമംഗലം വനമേഖലയിൽ അപകട ഭീഷണി ഉയർത്തിയിരുന്ന മരങ്ങൾ മുറിച്ച് നീക്കാൻനടപടി തുടങ്ങി അദാലത്ത് ഭവന വായ്പയെടുത്ത് കൂടിശികയായ വലിയ കടബാധ്യതയ്ക്ക് പരിഹാരം കാണാൻ അദാലത്തുകൾ സഹായകരമാകുമെന്ന് റോഷി അഗസ്റ്റിൻ എം

സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ഭവന നിർമ്മാണ വായ്പ കുടിശ്ശിക നിവാരണ അദാലത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കട്ടപ്പന ടൌൺ ഹാളിൽ നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭവനനിർമ്മാണത്തിനായി എടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കാതെ വലിയ കുടിശിഖയായവർക്ക് അർഹമായ ഇളവുകൾ നല്കി കുടിശ്ശിക നിവാരണത്തിനുള്ള അവസരമാണ് അദാലത്തിലൂടെ ലഭിച്ചിരിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു

ഇവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

കേരളത്തിലെ സഹകരണപ്രസ്ഥാനം രാജ്യത്തിന് മാതൃകയാണെന്നും ന്യൂ ജനറേഷൻ ബാങ്കുകൾ ജനങ്ങളെ കൊള്ളയടിക്കയാണെന്നും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ

എ പി അനിൽകുമാർ എംഎൽഎ അധ്യക്ഷനായി കെയർ ഹോം പദ്ധതിയിൽ കണ്ണത്ത് കാർക്കുഴിയൻ ആയിഷക്ക് ബാങ്ക് നിയന്ത്രണത്തിൽ നിർമിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റവും സ്പീക്കർ നിർവഹിച്ചു തെരഞ്ഞെടുപ്പ് കോട്ടയം ഇന്ന് നടക്കാനിരുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കോറം തികയാത്തതിനാൽ നാളെത്തേക്ക് മാറ്റി വച്ചതായി വരണാധികാരി കൂടിയായ ജില്ല കളക്ടർ അറിയിച്ചു

കേരളാ കോൺഗ്രസ് എമ്മിന് യുഡിഎഫ് അനുവദ്ദിച്ചു പ്ര്സിഡന്റ് സ്ഥാനത്തേക്ക് കേരളാ കോൺഗ്രസ് എമ്മിലെ എച്ചുക്ക് വിഭാഗങ്ങളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെയാണ് ക്ടോൺഗ്രസ് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചത്

ജലനിരപ്പ് വൻതോതിൽ കുറഞ്ഞതിനെ തുടർന്ന് ജൂൺ മൂന്നു മുതൽ ബോട്ടിംഗ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു

തീരുമാനം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അത് വേഗത്തിൽ കൈക്കൊണ്ട് അപേക്ഷകനെ അറിയിക്കണം

കെട്ടിട നിർമാണ ചട്ടങ്ങളുടെ ലംഘനം നെൽവയൽ തണ്ണീർത്തട നിയമം തീരദേശ നിയമം എന്നിവ ന്യൂനതയായുള്ള ഫയലുകളിൽ അടിയന്തിര നടപടിയെടുക്കാനും ജില്ലാ ആസൂത്രണ ഭവൻ ഹാളിൽ നടന്ന കെട്ടിട നിർമാണ അദാലത്തിൽ തീരുമാനമായി ഇതു സംബന്ധിച്ച് അതത് വകുപ്പുകൾക്ക് നിർദേശവും നൽകി അഗതി രഹിത കേരളം അഗതി രഹിത കേരളം പദ്ധതിയുടെ പ്രയോജനങ്ങൾ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തുന്നതിന്റെ ഭാഗമായി പദ്ധതിയുടെ സേവനങ്ങൾ ഇതുവരെ നൽകാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ ആഴ്ച തന്നെ സേവനങ്ങൾ ലഭൃമാക്കണമെന്ന് വയനാട് ജില്ലാ കളക്ടർ എ

പദ്ധതി നടത്തിപ്പുകാരായ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന തദ്ദേശ സ്വയംഭരണ അധ്യക്ഷൻമാരുടെ അവലോകന യോഗത്തിലാണ് നിർദേശം

ടൂറിസംപട്ടികജാതിപട്ടികവർഗ്ഗ വികസന വകുപ്പിന്റെ സഹകരണത്തോടെ പാലക്കാട് വടക്കഞ്ചേരിയിൽ ആരംഭിച്ച ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഇദ്ദേഹത്തിന്റെ ചികിത്സാചെലവുകളും ആവാസ് പദ്ധതിയിൽപ്പെടുത്തി തൊഴിൽ വകുപ്പാണ് വഹിച്ചത്